എസ്

ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയായി സിപിഐ എമ്മിന്റെയും സി പിഐ യുടെയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറെക്കുറെ ധാരണയായെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ ഏതാനും ദിവസങ്ങൾ കൂടി വേണ്ടിവരും ഘടകക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജന ചർച്ചകൾ യു ഡി

കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിപട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം

ഡി എ യിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും ഘടകകക്ഷികളുമായി സീറ്റ് ധാരണ ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട്